ബംഗ്ലാദേശ് സന്ദർശനത്തിനായി ്ധ്ാക്കയിലെത്തി

പ്രചാരണം ശക്തമാക്കി ്മുന്നുണികൾ ഇരട്ടവോട്ട് വിഷയ്ടത്തിൽ പ്രതിപക്ഷ നേതാവ് നൽകിയ ന് ഹർജി ഹൈക്കോട്ടതി ഇന്ന് പരിഗണിക്കും

ഇന്നുമുതൽ പോളിങ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തും

ധാക്ക വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്വീകരിച്ചു ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായാണ് പ്രധാനമന്ത്രി ബംഗ്ലാദേശിൽ എത്തിയത് കോവിഡ് മഹാമാരി വന്നതിനുശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശയാത്രയാണിത്

നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ് നേട്ടം ലക്ഷ്യമിട്ട് വൻ സാമ്പത്തിക പിന്തുണയോടെ സർക്കാർ ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗം സംഘടിതമായി നടത്തിയ നീക്കമാണിതെന്ന് ഹർജിയിൽ പറയുന്നു

ഒരു റിപ്പോർട്ട്

മുൻനിര പാർട്ടികളുടെ ദേശീയ നേതാക്കളെല്ലാം എത്തിയതോടെ സംസ്ഥാനത്ത് പ്രചാരണ രംഗം ചൂടുപിടിച്ചു

ഡി എ യുടെ താരപ്രചാരകനായി അടുത്ത മാസം രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ മത്സരിക്കുന്ന കോന്നിയിലെത്തും ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ ജെ പി നദ്ദ നാളെ കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തും

ഡി എഫിന്റെ രണ്ടാം ഘട്ട പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ രാഹുൽഗാന്ധി ഇപ്പോൾ പാലക്കാട് പ്രചാരണത്തിലാണ് തുടർന്ന് തൃത്താലയിലെത്തുന്ന അദ്ദേഹം വൈകിട്ട് പൊന്നാനിയിലും പെരിന്തൽമണ്ണയിലും വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും

ഡി എഫ് പ്രചാരണത്തിന് ഊർജ്ജം പകരാൻ എ

ഡി എഫിന്റെ പ്രചാരണത്തിന് ഊർജ്ജമേകി മുഖ്യമന്ത്രി ഇന്ന് തലസ്ഥാന ജില്ലയിലെ മൂന്ന് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും

പിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് തുടങ്ങിയ മുതിർന്ന നേതാക്കളും ഇടതുമുന്നണിയുടെ പ്രചാരണത്തിനായി മുൻനിരയിലുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഡി

വൈകിട്ട് കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിലെ പൊറ്റമ്മലിൽ പൊതുയോഗത്തിൽ പ്പുങ്കെട്ടുക്കുന്ന അദ്ദേഹം കോഴിക്കോട് നോർത്ത് മണ്ഡലത്തില്പ്പ് റോഡ് ഷോയിലും ബാലുശ്ശേരി കൊടുവള്ളി മണ്ഡലങ്ങളിലെ പരിപാടികളിലും സംബന്ധിക്കും സീതാറാം യെച്ചൂരി തുടർ ഭരണം വന്നാൽ പിണറായിയെ പിബി ക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ആന്റണി പറഞ്ഞത് സിപിഎം നെ ക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണെന്ന് സി

ഒരു വ്യക്തിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്നും ശബരിമലയിൽ വിശ്വാസികൾ മാപ്പു തരില്ല എന്ന പ്രസ്താവനയിൽ തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണെന്നും സീതാറാം യെച്ചൂരി കൊച്ചിയിൽ പറഞ്ഞു

എ സ്ഥാനം രാജിവച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ സ്വതന്തനായി മൽസരിച്ച് ജയിച്ച പി സി ജോർജ് ഇത്തവണ ജനപക്ഷം സ്ഥാനാർത്ഥിയായാണ് മൽസരിക്കുന്നത് ഇതുമൂലമുണ്ടായേക്കാവുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് നാമനിർദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് രാജി നൽകുകയായിരുന്നുവെന്ന് പി സി ജോർജ് അറിയിച്ചു ജില്ലകളിലൂടെ

ഡി എഫും കൈവിട്ട മണ്ഡലങ്ങൾ തിരികെപ്പിടിക്കാൻ യു ഡി എഫും ശ്രമിക്കുമ്പോൾ ജില്ലയ്ക്ക് മികച്ച നേട്ടത്തിലൂടെ അക്കൌണ്ട് തുടങ്ങാനാണ് എൻ ഡി

മുന്നണികളുടെ ദേശീയ സംസ്ഥാനു നേ്താക്കൾ പ്രചാരണത്തിനായി ജില്ലയിൽ എത്തിയതോടെ ക്കോഴിക്കോട് പ്രചാരണ രംഗം ചൂടുപിടിച്ചിരിക്കുകയാണ്

കോട്ടമൈതാനത്തു തുറന്ന വാഹനത്തിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തു

ഡി എഫിന്റെ പ്രധാന വാഗ്ദാനമായ ന്യായ് പദ്ധതി കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ കുതിച്ചു ചാട്ടമുണ്ടാക്കുമെന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു

ഇതിനായി ഇന്നുമുതൽ പോളിങ് ഉദ്യോഗസ്ഥർ ബാലറ്റുകളും അനുബന്ധ രേഖകളും വീട്ടിലെത്തിക്കും

വീട്ടിനുള്ളിൽ ക്രമീകരിക്കുന്ന പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് പേപ്പർ കവറിനുള്ളിലാക്കി ഒട്ടിച്ച് ഉദ്യോഗസ്ഥർക്ക് തിരികെ ഏൽപ്പിക്കണം

ഭിന്നശേഷിക്കാർ കോവിഡ് ബാധിതർ ക്വാറന്റൈനിൽ കഴിയുന്നവർ എന്നിവർക്കും ഇത്തരത്തിൽ തപാൽ വോട്ടിന് അർഹൃത്ത്യുണ്ട്

പി നദ്ദ തെരഞ്ഞെടുപ്പിന്റെ പ്രച്ചാര്യണ പരിപാടികളുടെ ഭാഗമായി ബിജെപി ദേശീയ അദ്ധ്യക്ക്ഷ്ൻ ജെ

രാവിലെ ധർമ്മടം മണ്ഡലത്തിലെ എൻ

എ സ്ഥാനാർഥി സി കെ പദ്മനാഭന്റെ പ്രചരണത്തിന്റെ ഭാഗമായി അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കും

ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ അവകാശവാദമായ സൌജന്യ ഭക്ഷ്യകിറ്റ് തുടങ്ങി വച്ചത് യു ഡി

പിന്നീട് പ്രളയത്തിന് ശേഷമാണ് ഈ സർക്കാർ ഇത് പുനരാരംഭിച്ചതെന്നും ഉമ്മൻചാണ്ടി തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

എ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിയാത്ത ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഡി എസ് ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഇന്ന് വൈകുന്നേരം തീരുമാനമെടുക്കുമെന്ന് ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഗുരുവായൂരിൽ ഡി

പി യുടെ സ്ഥാനാർത്ഥി ദിലീപ് കുമാറിനെ പിന്തുണയ്ക്കാനുള്ള ജില്ലാ നേതൃത്വത്തിന്റെ ശുപാർശ കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇന്ന് വൈകുന്നേരം പ്രഖ്യാപനമുണ്ടാകുമെന്ന് കെ

തലശ്ശേരിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ അറിയിച്ചു

ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം ജില്ലകളിൽ മഴയ്ക്ക് സാധൃതയുണ്ടെന്നും മുന്നറിപ്പുണ്ട്

സ്വർണ്ണവില കുറഞ്ഞു